പ്രമുഖ മുന്നണികളുടെയും പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളുടെ പത്രികകൾ സാധുവായി കണ്ടെത്തിയപ്പോൾ വയനാട് എറണാകുളം പത്തനംതിട്ട എന്നി വിടങ്ങളിലെ ഓരോ കക്ഷിരഹിതരുടെ പത്രികകളാണ് ഇന്ന് വീണ്ടും പരി ശോധിക്കുന്നത് മറ്റന്നാളാണ് പത്രിക പിൻവലിക്കാവുന്ന അവസാന ദിവ സം രുട്ടിട്ട്ട്ട്ട്ട്ട്ട നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മപരിശോധന പൂർത്തിയായതോടെ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ ചിത്രം കൂടുതൽ വ്യക്തമാ യി മത്സരിക്കാൻ ഔദ്യോഗികമായി അംഗീകാരം ലഭിച്ചതോടെ സ്ഥാനാർത്ഥി കൾ ആത്മവിശ്വാസത്തോടെയാണ് പര്യടനത്തിന്റെ രണ്ടാംഘട്ടം പൂർത്തി യാക്കുന്നത് ഇനി ദേശീയ രാഷ്ട്രീയവും ഒപ്പം കേരള രാഷ്ട്രീയവും സജീ വമായ പ്രചാരണ വിഷയമാകും രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം നൽകുന്ന ആത്മവിശ്വാസത്തോടെയാണ് യു ഡി എഫ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് സംസ്ഥാനത്തെ വികസന നയങ്ങളിലൂന്നിയും കേന്ദ്ര ഗവൺമെന്റിനെതിരായ വിഷയങ്ങൾ ഉന്നയിച്ചുമാണ് എൽ ഡി എഫിന്റെ പ്രചാരണം കേന്ദ്ര പദ്ധതികളുടെ പ്രത്യേകതകളും മികവും എടുത്തു കാട്ടിയാണ് എൻ ഡി എ പ്രചാരണരംഗത്ത് സജീവമാകുന്നത്

ജെ പിയെ ഭരണത്തിൽ നിന്ന് അകറ്റിനിർത്താൻ എല്ലാ സാഹചര്യ ങ്ങളും രാജ്യത്തുണ്ടായിട്ടും പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസ് അതിന് തയ്യാ റാകുന്നില്ലെന്ന് സി

ഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃ ഷ്ണൻ കുറ്റപ്പെടുത്തി പല സംസ്ഥാനങ്ങളിലും വിജയസാധൃത പുലർത്തുന്ന കക്ഷികളുമായി ചേർന്ന് ബി ജെ പിയെ തോൽപ്പിക്കാൻ ശ്രമിക്കാതെ ഒറ്റക്ക് മത്സരിച്ച് അവരെ സഹായിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം ഇടുക്കി രാജാക്കാട്ട് പറഞ്ഞു കേരളത്തിൽ ബി

പി ഇല്ലാത്ത സ്ഥലംനോക്കിയാണ് പാർട്ടി അധ്യക്ഷൻ മത്സരിക്കാനെത്തിയതെന്നും കോടി യേരി ആരോപിച്ചു രുട്ടിട്ട്ട്ട്ട്ട മുസ്തിംലീഗിനെ വൈറസ് എന്ന് വിളിക്കുകയും അവർ പാക്കിസ്ഥാൻ പതാക ഉപയോഗിക്കുന്നവരാണ് എന്ന് ആരോപിക്കുകയും ചെയ്തവർക്കെ തിരെ നടപടി തേടുമെന്ന് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ

എ മജീദ് അറിയിച്ചു എഴുപത് വർഷമായി രാജ്യത്ത് സുതാര്യമായി പ്രവർത്തി ക്കുകയും രാജ്യത്തിന്റെ അന്തസ്സിനുവേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്ന സംഘടനയാണ് ലീഗെന്ന് മജീദ് കോഴിക്കോട്ട് പറഞ്ഞു ദർവ്വെടു എല്ലാ വരും വോട്ട് ചെയ്യണ മെന്ന സന്ദേശം പതിച്ച ഹിമസാഗർ എക്സ്പ്രസിന് തിരുവനന്തപുരം റെയിൽവെ സ്റ്റേഷനിൽ തെര ഞ്ഞെടുപ്പ് കമ്മീഷനും റെയിൽവെയും സ്വീകരണമൊരുക്കി

കേരള എക്സ്പ്രസ് ഹൌറ എക്സ്പ്രസ് ഗോഹട്ടി എക്സ്പ്രസ് എന്നീ ട്രെയിനുകൾ വരുംദിവസങ്ങളിൽ തെരഞ്ഞെ ടുപ്പ് ബോധവത്കരണവുമായി സർവീസ് നടത്തും രുട്ട്ട്ട്ട്ട്ട്ട്ട മനുഷ്യ നിർമ്മിത പ്രളയം കാരണം സംസ്ഥാനത്ത് ഉണ്ടായ കൂട്ടക്കുരു തിയുടെ ഉത്തരവാദിത്വം ഇടത് ഗവൺമെന്റിന് മാത്രമാണെന്ന് ബി

പി സംസ്ഥാന വക്താവ് എം എസ് കുമാർ കുറ്റപ്പെടുത്തി നവോത്ഥാനത്തിന്റെ പേരുപറഞ്ഞ് സംസ്ഥാനത്ത് ഗവൺമെന്റ് ശബരിമല ആചാരത്തെ അട്ടിമറി ക്കാൻ ശ്രമിച്ചതായും കുമാർ പത്തനംതിട്ട കവിയൂരിൽ പറഞ്ഞു രദേഷ്ടെടു കോൺഗ്രസിന്റെ മിനിമം വേതന പദ്ധതിയെ വിമർശിച്ച നിതി ആയോഗ് വൈസ് ചെയർമാൻ രാജീവ്കുമാറിന്റെ നടപട്ടിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീ ഷൻ അതൃപ്തി അറിയിച്ചു മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണ് രാജീവ്കുമാർ നടത്തിയതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തി ഭാവി യിൽ ഇത്തരം പ്രസ്താവനകൾ ഉണ്ടാവരുതെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടു മുതിർന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ പാലിക്കേണ്ട നിഷ്പക്ഷത രാജീവ്കു മാർ ലംഘിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കുറ്റപ്പെടുത്തി രദേശ്ശേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിതം ആധാരമാക്കി നിർമ്മിച്ച പി

പൊതുതെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാൻ ലക്ഷ്യമിട്ടാണ് ചിത്രം നിർമ്മിച്ചതെന്നാരോപിച്ച് സുപ്രീംകോടതിയിൽ ഹർജി നിലനിൽക്കുന്നുണ്ട് രദ്ദമ്പ്പെട്ടറ ഹൃദയാഘാതത്തെ തുടർന്ന് കാക്കനാട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച യു ഡി എഫ് കൺവീനർ ബെന്നി ബെഹനാന്റെ ആരോഗ്യനില മെച്ചപ്പെട്ട തായി ഡോക്ടർമാർ അറിയിച്ചു ആൻജിയോപ്ലാസ്റ്റിക്ക് വിധേയനായ അദ്ദേഹം അപകടനില തരണം ചെയ്തതായി ആശുപത്രി കേന്ദ്രങ്ങൾ വെളി പ്പെടുത്തി

ബോംബെ ഐ ഐ ടിയിൽ നിന്ന് ബിടെക് ബിരുദം നേടിയ കനിഷക് കട്ടാരിയക്കാണ് ഒന്നാം റാങ്ക്

വയനാട് പൊഴുതനയിലെ ശ്രീധന്യ സുരേഷ് കേരളത്തിലെ ആദി വാസി വിഭാഗത്തിൽനിന്ന് ആദ്യമായി സിവിൽ സർവീസ് നേടുന്ന പെൺകു ട്ടിയായി

സിവിൽ സർവീസ് നേട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രീധ ന്യയെ അഭിനന്ദിച്ചു സാമൂഹിക പിന്നോക്കാവസ്ഥയോട് പടവെട്ടി നേടിയ വിജയം ഭാവിയിൽ നിരവധിപേർക്ക് പ്രചോദനമാകുമെന്ന് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു

പ്രിടിന്റെ പുറംതിണ്ണയിൽ കൃഷ്ണൻകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു

വണ്ണപ്പുറം സ്വദേശികളായ് ഇവർ ആശുപത്രിയിൽ ചികിത്സ തേടി

ആലപ്പുഴയിൽ ഇന്നലെ നാലുപേർക്കുകൂടി സൂര്യാ തപത്തിൽ പൊള്ളലേറ്റു ജില്ലയിൽ ഇന്നലെ ഏഴുപേർക്ക് ചിക്കൻപോക്സും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്

എൽ ക്രിക്കറ്റിൽ ഇന്നലെ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിനെ കൊൽക്കത്ത് നൈറ്റ് റൈഡേഴ്സ് അഞ്ച് വിക്കറ്റിന് തോൽപ്പിച്ചു റോയൽ ചലഞ്ചേഴ്സിന്റെ തുടർച്ചയായ അഞ്ചാം തോൽവിയാണിത് ഇന്ന് വൈകീട്ട് നാലിന് ചെന്നൈ പഞ്ചാബിനെയും രാത്രി എട്ടിന് ഹൈദരാബാദ് മുംബൈ യെയും നേരിടും

കെ സൂപ്പർകപ്പ് ഫുട്ബോൾ സെമി ഫൈനലിൽ കടന്നു

ഇന്ന് എഫ് സി ഗോവ ജംഷ്ഡപൂർ എഫ് സിയെ നേരിടും

കാർട്ടറിൽ ഇന്നലെ ചൈനീസ് താരമാണ് ശ്രീകാന്തിനെ തോൽപ്പിച്ചത് രുട്ട്ട്ട്ട്ട്ട്ട്ട കന്യാസ്ത്രീ പീഡനക്കേസിൽ ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലി നെതിരെ അടുത്ത ചൊവ്വാഴ്ച കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കും അന്വേ ഷണ സംഘം തയ്യാറാക്കിയ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാൻ സംസ്ഥാന പൊലീസ് മേധാവി അനുമതി നൽകി ഒരുമാസം മുമ്പ് കുറ്റ പത്രം തയ്യാറാക്കിയെങ്കിലും അനുമതി വൈകുകയായിരുന്നു കുറ്റപത്രം വൈകുന്നതിനെതിരെ ഇന്ന് വൈകീട്ട് കൊച്ചിയിൽ കന്യാസ്ത്രീകളും അവരെ പിന്തുണയ്ക്കുന്ന ആക്ഷൻ കൌൺസിലും സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്താനിരിക്കെയാണ് ചൊവ്വാഴ്ച കുറ്റപത്രം സമർപ്പിക്കാൻ അനു മതിയായത്

മാധ്യമ വാർത്തകളുടെ അടിസ്ഥാ നത്തിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചീഫ് ജസ്റ്റിസിനെഴുതിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടി യുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ് ദർവ്വെട്ടറ ഇന്നലെ അന്തരിച്ച പ്രശസ്ത ഡബ്ബിംഗ് ആർട്ടിസ്റ്റും നടിയുമായ ആനന്ദ വല്ലിയുടെ സംസ്കാരം വൈകീട്ട് മൂന്നിന് വെള്ളായണിയിലെ വീട്ടുവളപ്പിൽ നടക്കും മൂവായിരത്തോളം സിനിമകളിൽ പതിനായിരത്തിലധികം കഥാപാ ത്രങ്ങൾക്കാണ് ആനന്ദവല്ലി ശബ്ദം നൽകിയത്

സംഭരണശേഷി കുറഞ്ഞതിനാൽ നെല്ലെടുക്കാൻ നിർവാഹമില്ലെന്നു ചില മില്ലുടമകൾ അറിയിച്ചതിനെ തുടർന്നാണ് തീരുമാനം

രുവ്പ്പെടു ഇടുക്കി അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ ത്തിൽ മാതൃകാ സ്ഥാപനമായി മാറുകയാണ് ജില്ലയിലെ മിക്കവാറും പഞ്ചാ യത്തുകളും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് പൊടിച്ച് റോഡ് നിർമ്മാണത്തിന് നൽകു ന്നതിലൂടെ പഞ്ചായത്ത് വരുമാനവും നേടുന്നുണ്ട് ഇതോടെ ഹൈറേഞ്ചിലെ പ്ലാസ്റ്റിക് മാലിന്യത്തിന്റെ തോതിൽ കുറവുണ്ടായതായി വിലയിരുത്തപ്പെടു ന്നു ഇതുവരെ പതിനായിരം കിലോ പ്ലാസ്റ്റിക് പൊടി യൂണിറ്റിൽ നിന്ന് കയറ്റി അയച്ചു

പുതുശേരിയിൽ നിന്നും നഗരത്തിലെ പി എം ജി സ്കൂളിന് മുന്നിൽ നിന്നുമായി പിടിയിലായ മൂന്നുപേരും മലപ്പുറം സ്വദേശികളാണ് രുട്ട നിയമപഠനം പ്രാഥമിക അവിദ്യാഭ്യാസത്തിന്റെ ഭാഗമാക്കണമെന്ന് ഹൈക്കോടതി ജഡ്ജി കെ ഹരിലാൽ ആലപ്പുഴയിൽ പറഞ്ഞു ജില്ലാ നിയമ സേവന അതോറിറ്റി വിദ്യാർത്ഥികൾക്കായി തുടങ്ങിയ നേതൃത്വ പഠന കളരി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജസ്റ്റിസ് ഹരിലാൽ